ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ശ്രീനഗർ സന്ദർശനം തുടരുന്നു

ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തീരുമാനിച്ചു

ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദുരിതം വിതച്ച് മഴ

കർണാടകയിൽ അഞ്ചുപേർ മരിച്ചു

ജില്ലകളിൽ അവധി

ചൊവ്വാഴ്ച എത്തിയ അദ്ദേഹം ശ്രീനഗറിൽ തുടരുകയാണ്

ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്രഗവൺമെന്റ് പിൻവലിച്ച സാഹചര്യത്തിലാണ് ശ്രീ

കേന്ദ്രതീരുമാനത്തോടുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയുകയാണ് സന്ദർശന ലക്ഷ്യം ഇന്നലെ ഷോപ്പിയാനിൽ എത്തിയ അദ്ദേഹം പ്രദേശവാസികളുമായി ആശയവിനിമയം നടത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേന്ദ്രഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു

അതേസമയം ജമ്മു കശ്മീരിൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുൻഗണന അടിസ്ഥാനത്തിലാവും ഹോസ്റ്റൽ സൌകര്യം നൽകുക

ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലായിരുന്നു ചർച്ചു ഉഭയകക്ഷി താൽപ്പര്യമുള്ള വിഷയങ്ങൾക്ക് പുറമെ അതിർത്തിയിലെ സ്ഥിതിയും ചർച്ചയായി അതിർത്തിയുടെ കാര്യത്തിലും സുരക്ഷ സംബന്ധിച്ചും ഇരു രാജ്യങ്ങൾക്കും പൊതുനിലപാടാണെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ മുസീം അലി അറിയിച്ചു ഇത് സംബന്ധിച്ച സഹകരണം ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ബാക്കി അടുത്ത വർഷത്തോടെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശം

മുംബൈയിലെ ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ചതും ഇതേ ദിനത്തിലാണ് സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ധീര യോദ്ധാക്കളെയും സ്വാതന്ത്ര്യ പോരാട്ടത്തിനു ജീവത്യാഗം ചെയ്ത വ്യക്തികളെയും രാജ്യം ഇന്ന് അനുസ്മരിക്കും

നരേന്ദ്രമോദി പ്രകീർത്തിച്ചു

ഭൌതികശരീരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്ക്കരിച്ചു ന്യൂഡൽഹിയിൽ നടന്ന അന്ത്യകർമ്മങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതിർന്ന ബിജെപി നേതാവ് എൽ

അദ്വാനി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തു ഭൂട്ടാന്റെ മുൻ പ്രധാനമന്ത്രി ഷെറിങ്ങ് തോബ്ഗേ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

പടിഞ്ഞാറൻ കാബൂളിൽ രാവിലെയായിരുന്നു സ്ഫോടനമെന്ന് ആഭ്യന്തരമന്ത്രാലയ വക്താവ് നസ്റത്ത് റഹീനി പറഞ്ഞു താലിബാൻ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു

അനു രഞ്ജന ചർച്ച നിശ്ചയിച്ചതിനുശേഷം രാജ്യത്ത് സ്ഫോടനങ്ങൾ വ്യാപകമാണ്

വോട്ടെണ്ണൽ ഫലം അന്ന് തന്നെ ലഭ്യമാകും സമാജ്വാദി അംഗം നീരജ് ശേഖർ രാജിവച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്

മഹാരാഷ്ട്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലും മഴ നാശം വിതക്കുകയാണ്

മുഖ്യമന്ത്രി ബി

യദ്യൂരപ്പ ബലഗവിയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി

കൃഷ്ണ തുംഗഭദ്ര നേത്രാവതി എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് മഹാരാഷ്ട്രയിൽ സംഗ്ലി കൊൽഹാപൂർ സതാറ ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നത്

ഒഡീഷയിൽ മാൽക്കൻഗിരി റായഗഡ് കോരാപുട്ട് കന്ധമാൽ ഗജപതി തുടങ്ങിയ ജില്ലകൾ വെള്ളത്തിനടിയിലായി

മഴ ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇടുക്കി വയനാട് കാസർകോട് എന്നീ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു പാലക്കാട്ട് ഷോളയൂർ അഗളി പുതൂർപഞ്ചായത്തുകളിലെ അംഗൻവാടി മുതൽ ഹയർസെക്കൻഡറിവരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് ഇടുക്കിയിൽ കല്ലാർകുട്ടി പാംബ്ല ഡാമുകളുടെ രണ്ട് ഷട്ടറുകൾ കൂടി രാവിലെ എട്ട് മണിയോടെ ഉയർത്തുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു

കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദേശപ്രകാരം മുൻകരുതൽ ശക്തമാക്കി കണ്ണൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ അടയ്ക്കാത്തോട് മേമലക്കുന്ന് കൊട്ടിയൂർ ചാപ്പമല എന്നിവിടങ്ങളിൽ നിന്നും പ്രദേശ വാസികളെ പോലീസും അഗ്നിശമന സേനയും ചേർന്ന് രക്ഷപ്പെടുത്തി

അട്ടപ്പാടിയിൽ ഭവാനി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പത്തോളം വീടുകൾ അപകട ഭീഷണിയിലാണ്

പൊരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടർ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ ചാലക്കുടി പുഴയുടെ സമീപം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ശക്തമായ കാറ്റിൽ കൊല്ലത്ത് വിവിധയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി ചാത്തന്നൂർ സ്പിന്നിങ്ങ് മില്ലിന് സമീപം മരംവീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു

അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യഹർജി കോടതി നിരാകരിച്ചതിനെ തുടർന്നാണ് നടപടി

എൻ

വായ്പാ തട്ടിപ്പ് കേസിലെ മുഖ്യ സൂത്രധാരൻ എന്നു കരുതുന്ന ഗോകുൽ ഷെട്ടിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ സിബിഐ കോടതിയുടെ അനുവാദം തേടി കഴിഞ്ഞ വർഷം മാർച്ചിലാണ് പിഎൻബിയിലെ മുൻ ഡെപ്യൂട്ടി മാനേജറായ ഗോകുൽ ഷെട്ടിയെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരയുദ്ധം മുറുകുന്നതിനിടെയാണ് യു

ബിജെപി സജീവ അംഗങ്ങളുടെ ശില്പശാലയിലും അദ്ദേഹം അഭിസംബോധന ചെയ്യും

ജില്ലാകളക്ടർ എസ് സുഹാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് പ്രശ്ന പരിഹാരമായത്

ടി

ടി

അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ തൽപരരായ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ആയ ലിറ്റിൽ കൈറ്റ്സ് സംരംഭത്തിന്റെ സംസ്ഥാനതല ക്യാമ്പ് ഇന്ന് കളമശ്ശേരിയിൽ മന്ത്രി പ്രൊഫ

കൊച്ചിയിൽ ഇന്നല ഫൈനലിൽ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്ക് കോട്ടയത്തെ പരാജയപ്പെടുത്തിയാണ് തൃശ്ശൂർ ജേതാക്കളായത്